ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പും ഏപ്രിൽ ആറിന്

എന്നിവിടങ്ങളിലെ നിയ്മസ്ഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു

രാഷ്ട്രങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരളം പശ്ചിമ ബംഗാൾ തമിഴ്നാട് അസം എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യപിച്ചത്

ഇന്ന് മുതൽ മാതൃക്കുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കൂടുതൽ വിവരങ്ങളുമായി ബിന്ദുപ്പിനോദ്

കേരളത്തോടൊപ്പം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടക്കും തമിഴ്നാട്ടിലെ കന്യാകുമാരി മണ്ഡലത്തിലും കേരളത്തിൽ മലപ്പുറത്തും ഇതേ ദിവസം തന്നെ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പും നടക്കും അസമിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

പ്രശ്നസാധ്യത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ സ്വീകരിക്കുമെന്നും കോവിഡ് പ്രോട്ടോകോൾ കൃതൃമായി പാലിക്കുമെന്നും മുഖൃ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട്ടിലെ എം

ഇന്ത്യൻ ആരോഗ്യമേഖലയ്ക്ക് കൂടു തൽ ബഹുമാന്യത കൈവീന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

ഗെയിംസിന്റെ മനോഹരമായ സംഘാടനത്തിന് ജമ്മുകശ്മീർ ഭരണകൂടത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു നാളെ മുതലാണ് വിന്റർ ഗെയിംസിലെ മത്സരങ്ങൾ തുടങ്ങുന്നത്

രണ്ട് പ്രദേശങ്ങളെ ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്

സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്

അതിനാൽ ടെസ്റ്റ് നടത്താതിരിക്കാണാകില്ല

ഈ പ്രദേശത്ത് എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ വീക്ഷണം എല്ലാതരത്തിലും നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു നാഗാലാന്റിലെ മോൺ മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തദ്ദേശീയ തലത്തിൽ കളിപ്പാട്ട നിർമാണത്തെ പ്രോത്സാഹിപ്പിക്കണ മെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിലുന്നിയാണ് മേള സംഘടിപ്പിക്കുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ കളിപ്പാട്ട നിർമാതാക്കൾ ഉപഭോക്താക്കൾ വിദ്യാർത്ഥികൾ അധ്യാപ കർ തുടങ്ങിയവർ ഒറ്റ വിർച്ചൽ പ്ലാറ്റ്ഫോമിലൂടെ പങ്കെടുക്കും ആയി രത്തിലധികം കളിപ്പാട്ട നിർമാതാക്കൾ തങ്ങളുടെ ഉത്പന്നങ്ങൾ വെർച്ചൽ പ്രദർശനത്തിൽ കാഴ്ച വയ്ക്കും

കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കും

എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും

സിനിമയോട് മികച്ച കാഴ്ചപ്പാട് പുലർത്തുന്ന തലശ്ശേരിയുടെ മണ്ണിന് പുത്തൻ അനുഭവം സമ്മാനിച്ചു കൊണ്ടാണ് അഞ്ച് ദിവസം നീണ്ട ഈ ചലച്ചിത്ര മാമങ്കം അവസാനിക്കുന്നത്

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പ്രിപാടി പ്രക്ഷേപണം ചെയ്യും

എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നു ഗോവയിലെ തിലക് മൈതാനിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെ രണ്ടിനെതിരെ മൂന്നു ഗോളുകൾക്ക് ജംഷദ്പൂർ എഫ് സി പരാജയപ്പെടുത്തി